സത്തെ ഇന്ത്യൻ സന്ദർശനത്തിനായി ന്യൂഡൽഹിയി ലെത്തി

നാല് ഗോളുകൾക്ക് ഇന്ത്യ പരാജയപ്പെടുത്തി

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദുമായും പ്രധാന മന്ത്രി നരേന്ദ്രമോദിയുമായും ചർച്ചകൾ നടത്തും ഉപരാഷ്ട്ര പതി വെങ്കയ്യനായിഡു വിദേശ കാര്യമന്ത്രി സുഷമ സ്വരാജ് എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തും റൈയ്സീന സംഭാഷണത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തെ എർണ സോൾ ബെർഗ് അഭിസംബോധന ചെയ്യും ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താൻ സന്ദർശനം സഹായകമാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു

മന്ത്രി മാരായ സുഷമ സ്വരാജ് അരുൺ ജെയ്റ്റ്ലി നിർമ്മല സീതാരാ മൻ എന്നിവരുമായി അവർ കൂടിക്കാഴ്ച നടത്തും റെയ്സീന സംഭാഷണത്തിലും ആസ്ട്രേലിയൻ മന്ത്രി പങ്കെടുക്കും

ടി കൌൺസി ലിന്റെ മന്ത്രിതല ഉപസമിതി ശുപാർശ ചെയ്തു കൂടുതൽ വിവരങ്ങളുമായി വീണ മുകുന്ദൻ

ബിഹാർ ഉപമുഖ്യമന്ത്രി സുശിൽ മോദിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിതല സമിതിയാണ് കേരളത്തിൽ പ്രളയ സെസ് ഏർപ്പെടു ത്താൻ തീരുമാനിച്ചത് ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്കും സേവന ങ്ങൾക്കും സെസ് ഏർപ്പെടുത്തണമെന്ന് സംസ്ഥാനത്തിന് തീരു മാനിക്കാം ദുരന്തങ്ങളിൽ നിന്ന് കരകയറുന്നതിനുള്ള സെസ് ഏർപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ ജി

ടി കൌൺസിലിനെ സമീപിക്കണമെന്ന് ശ്രീ

പ്രകൃതിദുരന്തങ്ങൾ അനുഭവിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് അനുവദനീയമായ പരിധിയ്ക്കപ്പുറം കടംവാങ്ങുന്നതിന് അനു മതി നൽകണമെന്നും മന്ത്രിതലസമിതി നിർദ്ദേശിച്ചു

ബജറ്റ് മാനേജ്മെന്റ് നയമനുസ രിച്ചും സാമ്പത്തിക ഉത്തരവാദിത്തങ്ങൾ കണക്കിലെടുത്തുമാണ് തീരുമാനമെടുക്കേണ്ടതെന്നും ചർച്ചകൾക്കു ശേഷം ശ്രീ

അതേസമയം സൂക്ഷ്മ ചെറുകിട ഇടത്തരം സുംര്യംഭങ്ങൾക്ക് ജി

ടി ഏർപ്പെടുത്തിയ വിഷയം ചർച്ച ചെയ്യാൻ കേന്ദ്ര ധനകാര്യസഹ മന്ത്രി ്ശിവ് പ്രതാപ് ശുക്തയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗ ത്തിൽ ഇത്തരം സംരംഭങ്ങളെ ജി എസ്

രാജ്യരക്ഷാ മന്ത്രി പാർലമെന്റിൽ കളവു പറഞ്ഞതായും അതുമായി ബന്ധപ്പെട്ട തെളിവു നൽകാത്തപക്ഷം മന്ത്രി രാജിവയ്ക്കണമെന്നുമായിരുന്നു ശ്രീ രാഹുൽഗാന്ധി ട്വീറ്റ് ചെയ്തത്

എല്ലിനു നൽകിയ കരാർ സാങ്കേതിക നടപടികളുടെ ഘട്ടത്തിലാണെന്നും ഇരുപതിനായിരം കോടി രൂപയുടെ മറ്റൊരു കരാറും ഇതേ ഘട്ടത്തിലാണെന്നും ശ്രീമതി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു

ഐ ഇടപാടുകൾ ഒരു ലക്ഷം കോടി രൂപ കടന്നതായി കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ്

എൺപത്തി രണ്ടായിരം കോടി രൂപയുടെ ഇടപാടുകൾ നവംബറിലും എഴുപത്തി നാലായിരം കോടി രൂപയുടെ ഇടപാടുകൾ ഒക്ടോബറിലും നടന്നിട്ടുണ്ട് ഉപഭോക്താക്കൾക്കിടയിൽ ഈ ഇന്ത്യൻ മൊബൈൽ ആപ്തിക്കേഷന് മികച്ച പ്രചാരമാണുള്ളതെന്നും ശ്രീ രവിശങ്കർ പ്രസാദ് അഭിപ്രായപ്പെട്ടു

ആർ ഒ ചെയർമാൻ ഡോ ശിവൻ അറിയിച്ചു

മൂന്നു മാസത്തിനകം ചന്ദ്രയാൻ ദൌത്യം നടപ്പാക്കുമെന്ന് ഡോ

ഇതുവരെ പര്യവേഷണം നടത്താത്ത ചന്ദ്രന്റെ ഒരു ഭാഗത്താകും ചന്ദ്രയാൻ ഇറങ്ങുക

കാലഹരണപ്പെട്ട സാങ്കേതിക വിദൃ ഒഴിവാക്കി ടെക്സ്റ്റൈൽ മേഖലയെ ആധുനികവത്ക്കരിക്കാൻ അനുയോജ്യ സമയമാണിതെന്നും ഉപരാഷ്ട്രപതി വൃക്തമാക്കി കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയം ഇതിനകം നടപ്പാക്കിയ പുതിയ പദ്ധതികളും നയവും ഈ രംഗത്ത് ഗുണപ്പരമായി മാറ്റങ്ങൾക്ക് തുടക്കമിട്ടതായും ശ്രീ വെങ്കയ്യ നായിഡു പറഞ്ഞു

തുടർച്ചയായ മൂന്നാം തവണയാണ് ഹസീനു പ്രധാനമന്ത്രി പദത്തിലേറുന്നത്

ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ തായ്ലന്റിനെ ഒന്നിനെ തിരെ നാല് ഗോളുകൾക്ക് ഇന്ത്യ പരാജയപ്പെടുത്തി

മറ്റു ചില തെളിപ്പുകളും കണ്ടെത്തിയിട്ടുണ്ടെന്നും ഇതു സംബന്ധിച്ച് ഉടമസ്ഥരുടെ വിശദീകരണം ആരാഞ്ഞതായും വകുപ്പ് പുറത്തിറക്കിയ വാ്ർത്ത്രൂാക്കുറിപ്പിൽ വിശദമാക്കുന്നു

ജെ

യുടെ പ്രകടനപത്രിക രൂപീകരിക്കാനുള്ള സമിതിയുടെ ചെയർമാനായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിനെ നിയമിച്ചു

ഇവർ തൊഴിൽ വൈദഗ്ദ്ധ്യം ഉള്ളവരായിരുന്നില്ല് എന്നും പതിറ്റാണ്ടുകളായി ഭരണകൂടത്തിന്റെ നിയന്ത്രമില്ലാതെയാണ് ഇവർ പ്രവർത്തിച്ചിരുന്ന്തെന്നും ഒന്ന്ദ്യോഗിക വക്താവ് നിക് മൊഹമ്മദ് നസാരി അറിയിച്ചു